പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഉച്ചയ്ക്കുശേഷം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ലോക്ഡൌണും ചൂർച്ചയാവും

രാജ്യത്ത് യാത്രാ ട്രെയിനുകൾ നീള്ളെ മുതൽ ഭാഗികമായി പുനരാരംഭിക്കും

വന്ദേ ഭാരത് ദൌതൃത്തിന്റെ ഭാഗമായി ദുബായ് ബഹറിൻ എന്നിവിടങ്ങളിൽ തിന്ന് രണ്ട് വിമാനങ്ങൾ ഇന്ന് കേരളത്തിലെത്തും

ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരുടെ തിരക്ക് വർധിച്ചതോടെ സംസ്ഥാനത്തെ ചെക്ക്പോസ്റ്റുകളിൽ പരിശോധന ഊർജിതമാക്കി

തൊഴിലാളികളുടെ സൂരക്ഷിത യാത്രയ്ക്ക് റയിൽവേയുമായി സഹകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം

ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനുശേഷം പ്രധാനമന്ത്രി ഇത് അഞ്ചാം തവണയാണ് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് കോവിഡ് പ്രതിരോധ നടപടികളും ലോക്ഡൌണിൽ ഇളവുകൾ വരുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയായേക്കും അതിഥി തൊഴിലാളികളുടെ യാത്ര ഹോട്ട്സ്പോട്ടുകളിലെ കൊറോണ നിയന്ത്രണ നടപടികൾ തുടങ്ങിയവയും പ്രെർച്ചാ വിഷയമാകും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമുന്തിട് നിർമലാ സീതാരാമൻ ആരോഗൃമന്ത്രി ഡോ ഹർഷ്ടവ്വർദ്ധൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും

എസ് മഗർ മാലിദ്വീപിൽ നിന്ന് നാളെ വൈകിട്ടോടെ കൊച്ചിയിലെത്തും

നാളെ മുതൽ ഘട്ടംഘട്ടമായാണ് പ്രത്യേക സർവ്വീസ് തുടങ്ങുന്നത്

ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേയ്ക്ക് ബുധനാഴ്ച ആദ്യ ട്രെയിൻ ഉണ്ടാകുമെന്നാണ് സൂചന ദിബ്രുഗഡ് അഗർത്തല സെക്കന്തരാബാദ് ബംഗളൂരു ചെന്നൈ ഹൌറ ബിലാസ്പൂർ പറ്റ്ന റാഞ്ചി ഭുവനേശ്വർ മഡ്ഗാവ് മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ജമ്മു താവി സർവ്വീസുകൾ എന്നിവിടങ്ങളിലേയ്ക്കാണ് മറ്റ് ഐ

ഇവരെ സ്വീകരിച്ച് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ കലക്ടർ ജാഫർ മലിക് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധ്ധി ആന്റണി മുനിയറ

വിശദാംശങ്ങളുമായി പാലക്കാടു നിന്നും ആകാശവാണി പ്രതിനിധി ഫെയ്സൽ അലിമുത്ത്

തൊഴിലാളികൾക്ക് നാട്ടിലേയ്ക്ക് മടങ്ങാൻ കൂടുതൽ് ശ്രമിക് ട്രയിനുകൾ ഏർപ്പെടുത്താൻ സഹകരിക്കണം ആരോഗ്യ പ്രവർത്തകരുടെ യാത്ര ഒരു കാരണവശാലും തടയരുത് തൊഴിലാളികൾ റോഡ് വഴിയോ റയിൽപ്പാത വഴിയോ നാട്ടിലേയ്ക്ക് നടന്നുപോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

വിശദവിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേയ്ക്ക്